രാജ്യത്ത് സൌരോർജ്ജ പദ്ധതി വ്യാപിപ്പിക്കുമെന്ന് പ്രധാനമന്ത്രി

രോഗവ്യാപന തോത് അറിയാൻ രാജ്യവ്യാപകമായി സിറം പരിശോധന ഉടൻ ആരംഭിക്കുമെന്ന് ഐ സി എം ആർ

എ ഇ യും ധാരണയായി

പി യിൽ എട്ടു പോലീസുകാരെ കൊലപ്പെടുത്തിയ കൊടും കുറ്റവാളി വികാസ് ദുബെ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു

കേരളത്തിൽ കോവിഡ് രോഗബാധ വർധിച്ച സാഹചരൃത്തിൽ ജാഗ്രത ശക്തമാക്കി

ഏഷ്യയിലെ ഏറ്റവും വലിയ സൌരോർജ്ജ വൈദ്യുത നിലയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു വിശദാംശങ്ങളുമായി വിജേഷ്

റേവാ നിലയത്തിനു പുറമെ ഷാജാപുർ നീമച്ച് ഛത്തർപൂർ എന്നിവിടങ്ങളിലും സൌരോർജ ജോലി പ്ലാന്റുകളുടെ പുരോഗമിക്കുകയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു

സംശുദ്ധ ഊർജം എന്നത് സൌരോർജത്തിന് വ്യാപക സ്വീകാര്യത ലഭിക്കുന്നു ഒരു ലോകം ഒരു സൂര്യൻ ഒരു വിതരണ ശൃംഖല എന്ന ആശയം ലോകത്തെ ചെറിയ രാഷ്ട്രങ്ങളുടെ ഊർജ്ജ ലഭ്യതയ്ക്ക് സഹായകരമായിരിക്കുമെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു

സംസ്ഥാനത്തിന് പുറത്ത് വൈദ്യുതി വിതരണം നടത്താൻ പര്യാപ്തമായ രാജ്യത്തെ ആദ്യ പുനരുജ്ജീവന ഉൌർജ്ജ പ്രോജക്ടാണിത്

എ

ഇന്ത്യയിൽ കഴിയുന്ന യു എ ഇ പൌരന്മാർക്ക് സ്വദേശത്തേയ്ക്ക് മടങ്ങിപ്പോകാനുള്ള സൌകര്യം മുൻനിർത്തിയാണ് തീരുമാനമെന്ന് കേന്ദ്ര വ്യോമയാനമന്ത്രി ഹർദീപ് പുരി ട്ടിറ്ററിൽ അറിയിച്ചു

ഇ യും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തത്തിന്റെ ഭാഗമായാണ് നടപടി

സി എം

അപകടത്തിൽ നാലു പൊലീസുകാർക്ക് പരിക്കേറ്റിട്ടുണ്ട്

ഏഴു ദിവസത്തെ തെരച്ചിലിനെ തുടർന്ന് മധ്യപ്രദേശിലെ ഉജ്ജയിനിൽ നിന്നാണ് ഇയാൾ പോലീസിന്റെ പിടിയിലായത്

രജൌരി ജില്ലയിലെ നൌഷേര മേഖലയിലാണ് പ്രകോപനമില്ലാതെ പാക് സൈന്യം വെടിവയ്പ് നടത്തിയത്

ബന്ദിപ്പോറയിലാണ് ഇയാൾ പിടിയിലായത് ഹാജിൻ മേഖലയിൽ ഭീകരരുടെ സാന്നിധ്യം മനസ്സിലാക്കിയ പോലീസ് തെരച്ചിൽ പിടികൂടിയത്

അന്വേഷണം തുടരുകയാണെന്ന് പോലീസ് അറിയിച്ചു

ജില്ലയിലെ പ്രത്യേക കർമസേന സശസ്ത്ര സീമാ ബൽ എന്നിവ സംയുക്തമായാണ് നക്സലുകളെ നേരിട്ടത് മേഖലയിൽ നിന്ന് ആയുധങ്ങളും സ്ക്ഫോടക വസ്തുക്കളും കണ്ടെടുത്തു

ഇതുവരെ ലോകത്തൊട്ടാകെ അഞ്ചര ലക്ഷത്തിലധികം പേർ മരിച്ചു

ഉറവിടം അറിയാത്ത ഏഴ് പേരുണ്ട്

തിരുവനന്തപുരം നഗരസഭാ പരിധിയിൽ ട്രിപ്പിൾ ലോക്ഡൌൺ കർശനമായി തുടരുകയാണ് അതേസമയം ലോക്ഡൌൺ നിയന്ത്രണങ്ങളിൽ ഇളവ് വേണമെന്ന് ആവശ്യപ്പെട്ട് പൂന്തുറയിൽ ജനങ്ങൾ തെരുവിലിറങ്ങി അവശൃ സാധനങ്ങൾ വാങ്ങാൻ പുറത്തിറങ്ങണമെന്ന് ആവശ്യപ്പെട്ടാണ് പ്രതിഷേധം

എസ്

എസ്

സി എസ് ഇ കൌൺസിലിന്റെ വെബ്സൈറ്റിൽ ഫലം അറിയാം

ഇതിനുള്ള വിശദാംശങ്ങൾ വെബ്സൈറ്റിലുണ്ട് പ്രിൻസിപ്പലിന്റെ ഐ

യും പാസ്വേർഡും ഉപയോഗിച്ച് കരിയേഴ്സ് പോർട്ടലിൽ നിന്ന് സ്കുളൂകൾക്ക് പരീക്ഷാഫലം ശേഖരിക്കാമെന്ന് വാർത്താക്കുറിപ്പിൽ അറ്റ്യൂയിച്ചു

സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള ഭക്ഷ്യക്കിറ്റ് വിതരണം ആരംഭിച്ചതായും മുഖ്യമന്ത്രി അറിയിച്ചു

ബി എസ് ഇ സിലബസിൽ നിന്ന് ചില പാഠഭാഗങ്ങൾ ഒഴിവാക്കിയതു സംബന്ധിച്ച് ചിലർ വിവാദം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണെന്ന് കേന്ദ്രമന്ത്രി രമേഷ് പൊഖ്രിയാൽ നിഷാങ്ക് പറഞ്ഞു

ചെന്നെയിലെ രാജീവ്ഗാന്ധി ജനറൽ ആശുപത്രിയിൽ നഗരത്തിലെ വിവിധ കോവിഡ് ക്യാമ്പുകളും കേന്ദ്ര സംഘം ഇന്നലെ സന്ദർശിച്ചിരുന്നു

ലഫ്റ്റനന്റ് ക്രൂർണറുടെ അധ്യക്ഷതയിൽ കുൽഗാമിൽ ചേർന്ന സ്ക്ട്യൂക്ത സുരക്ഷാ അവലോകന യോഗം നിലവിലെ സ്ഥിത്യ് വിലയിരുത്തി